ലോകമലയാളദിനാചരണം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും തീർത്ഥാടനകാലത്ത് ശബരിമലയിൽ കെ

സി വിപുലമായ സൌക ര്യങ്ങൾ ഏർപ്പെടുത്തിയതായി മന്ത്രി എ

ശശീന്ദ്രൻ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഭവനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കു മെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം മൺവിളയിൽ പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റിൽ വൻ തീപിടു ത്തം തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു ഇന്ത്യ വെസ്റ്റിൻഡീസ് അഞ്ചാം ഏകദിനം ഇന്ന് തിരുവനന്തപുരത്ത്

നിക്ഷേപകർക്ക് അനുകൂല അന്തരീക്ഷം ഉറപ്പാക്കി സാമ്പത്തിക പരിഷ്കാര ങ്ങൾ തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തത്തെ അതിജീവിച്ചതിന്റെ ആശ്വാസത്തോടെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് ഇത്തവണ പിറന്നാളിനെ വരവേല്ക്കുന്നത് മലയാളം ശ്രേഷ്ഠ ഭാഷാ വാരാചരണപരിപാടികൾക്കും ഇന്ന് തുടക്കമാകും ലോക മലയാള ദിനാചരണം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മുഖ്യ മന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മലയാളം മിഷൻ സംഘടിപ്പി ക്കുന്ന ഭാഷാപ്രചരണ പരിപാടിയായ ഭൂമി മലയാളം പദ്ധതിയുടെ ഭാഗമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി നിരവധി പ്രവാസി മലയാളി സംഘടനകളും കൂട്ടായ്മകളും ഭൂമി മലയാളത്തിന്റെ ഭാഗമായ ലോക മലയാള ദിനാചരണം നടത്തും മലയാള ദിനാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും

ജന്മദിനത്തിന്റെ ഭാഗമായി ദ്ധീപ് തലങ്ങളിൽ വിവിധ ആഘോഷപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രാവിലെ ഏഴര യോടെ കവരത്തിയിൽ നടക്കുന്ന ഔദ്യോഗിക് ചടങ്ങിൽ ലക്ഷദ്വീപ് അഡ്മിനി സ്ട്രേറ്റർ ഫാറൂഖ് ഖാൻ ദേശീയപതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറി ക്കും

ക്ഷേത്രപ്രവേശനവിളംബരവുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകൾ വിളംബരത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഇതിനുശേഷം കേരള സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ എന്നിവ വിശദമായി പ്രതിപാദിക്കുന്ന പ്രദർശനം വിദഗ്ദ്ധരെ ഉൾക്കൊള്ളിച്ച് പ്രഭാഷണ ങ്ങൾ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ സംസ്ഥാനമൊട്ടാകെ നടക്കുമെന്നും മന്ത്രി പറഞ്ഞു ക്ഷേത്രപ്രവേശന വിളംബരം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആചാ രലംഘനങ്ങളിൽ ഒന്നാണെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയ ഇത്തരം നവോത്ഥാന പാരമ്പര്യത്തെ മുറുകെ പിടി ക്കാൻ ജനങ്ങൾ സന്നദ്ധരാണെന്നും ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വാർഷി കാഘോഷം ഇത്തരം ഗൌരവമായ സംവാദത്തിന് നാട്ടിൽ സന്ദർഭമുണ്ടാക്ക ണമെന്നും അദ്ദേഹം പറഞ്ഞു

് ് ് ് ് ് ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലത്ത് ശബരിമലയിലേക്ക് കെ എസ് ആർ ടി സി വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി എ

ഓരോ മിനിട്ട് ഇടവിട്ട് നോൺ എ

ബസ്സുകളും രണ്ട് മിനിറ്റ് ഇടവിട്ട് എ

ഇത്തവണ കെ

സിയുടെ ചെയിൻ സർവീസുകൾ ഉണ്ടാകു്മെന്നും മന്ത്രി അറിയിച്ചു എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഭവനം എന്ന ലക്ഷ്യം സാക്ഷാത്ക രിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തിരുവനന്തപുരം മുട്ടത്തറ യിൽ മത്സ്യത്തൊഴിലാളി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ സമർപ്പണം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്നുവർഷത്തിനുള്ളിൽ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഭൂമിയും വീടും ഉറ പ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

തിരുവനന്തപുരം മൺവിളയിൽ വൻ തീപിടുത്തം ഫാമിലി പ്ലാസ്റ്റി ക്സിലെ നിർമ്മാണ യൂണിറ്റിലാണ് തീപിടിച്ചത് നാലു നിലയുളള കെട്ടിടവും അതിലുണ്ടായിരുന്ന ഉല്പന്നങ്ങളും പൂർണ്ണായും കത്തിയമർന്നു

വിഷപ്പുക ശ്വസിച്ച് രണ്ടുപേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് എട്ടുമണിയോടെയുണ്ടായ തീപിടുത്തം നിയന്ത്രണവിധേയമായെങ്കിലും തീ പൂർണ്ണമായി അണയ്ക്കാൻ ശ്രമം തുടരുകയാണ് ജില്ലയിലെ യും തമിഴ്നാട്ടി ലെയും അഗ്നിശമനസേനകളും തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഫയർഎഞ്ചിനുകളും രംഗത്തുണ്ട്

സ്ഥിതി നിയന്ത്രിക്കുന്നതിന് പൊലീസ് സംഘം സ്ഥലത്തുണ്ട് മന്ത്രി കടകം പള്ളി സുരേന്ദ്രൻ സംഭവസ്ഥലം സന്ദർശിച്ചു

രണ്ടുദിവസം മുമ്പും ഇതേ ഗോഡൌ ണിൽ തീപിടിച്ചിരുന്നുവെന്നും അഞ്ചു ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീ അണ ച്ചതെന്നും പൊലീസ് പറഞ്ഞു മൺവിള കുളത്തൂർ വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ ഇന്ന് അവധി നൽകി

തീപിടുത്തമുണ്ടായ ഗോഡൌണിനു സമീപമായിരുന്നു വേദി പാചകവാതക വില വീണ്ടും വർദ്ധിച്ചു

കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും ഉച്ചകഴിഞ്ഞ് ഒന്നരയ്ക്കാണ് മത്സരം അഞ്ചുമത്സര പരമ്പരയിൽ രണ്ടു മത്സരങ്ങൾ ജയിച്ച് മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യ അവസാന ഏകദിനത്തിലും വിജയം സ്വന്തമാക്കി പ്രമ്പര നേടാനുള്ള തയ്യാ റെടുപ്പിലാണ് ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ വൻവിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ

ത്തയെ ബംഗളുരു എഫ് സി ഒന്നിനെതിരെ രണ്ടു ഗോളിന് തോൽപിച്ചു ഇതോടെ നാല് കളിയിൽ നിന്ന് ബംഗളുരു പത്ത് പോയന്റുമായി മൂന്നാം സ്ഥാനത്തെത്തി

പ്പൂർ ക്ലബ് നെറോക്കയും തമ്മിലെ മത്സരം സമനിലയിൽ കലാശിച്ചു ഇരുടീമു കളും ഓരോ ഗോൾ നേടി ഞായറാഴ്ച കോഴിക്കോട്ട് ചെന്നൈ സിറ്റിക്കെതിരെ യാണ് ഗോകുലം എഫ് സിയുടെ അടുത്ത കളി രഞ്ജിട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് തിരുവനന്തപുരത്ത് ആതിഥേയരായ കേരളം ഹൈദരബാദിനെ നേരിടും

ഉത്സവം ഇന്ന് പുലർച്ചെ നാലുമണിയോടെ നട തുറന്നു

ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ കലക്ടർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്

ബന്ധിച്ച് ഇന്ന് പത്തനംതിട്ട പരുമലയിൽ തീർത്ഥാടക സംഗമം നടക്കും ബസേലി യോസ് മാർത്തോമ്മാ ദ്വീതിയൻ കാതോലിക്കാ ബാവ തീർത്ഥാടകസംഗമം ഉദ്ഘാ ടനം ചെയ്യും

ഭൂമിയാക്കിയതെന്ന് കെ

സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മറ്റി സംഘടിപ്പിച്ച മതേതര സന്ദേശ യാത്രയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എമ്മും ബി

യും കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണെന്നും സംഘപരിവാറും പിണറായിവിജയനും തമ്മിൽ എല്ലാ കാല്പത്തുമുണ്ടായിരുന്ന നല്ലബന്ധം ഇപ്പോഴും തുടരുകയാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

കൊല്ലത്ത് യു

ശബരിമല വിഷയത്തിൽ നടക്കുന്നത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള പോരാട്ട മാണെന്നും സവർണ്ണരും അവർണ്ണരും തമ്മിലുള്ള പോരാട്ടമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും ശബ രിമല വിഷയത്തിൽ തുടർ പ്രക്ഷോഭം യോഗം ചർച്ച ചെയ്യും മഞ്ചേശ്വരം ഉപതെ രഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്വീകരിക്കേണ്ട നിലപാടും ചർച്ചാവി ഷയമാകും

മന്ത്രി എ

ബാലൻ പറഞ്ഞു

ടെലിവിഷന് ദ്ദ വർഷത്തെ ചരിത്രം മാത്രമേയുള്ളൂവെങ്കിലും ജനങ്ങളെ സ്വാധീനിക്കുന്ന മാധ്യമ മാണതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു

കോളനികളിൽ ഏർപ്പെടുത്തുന്ന സാമൂഹ്യപഠനമുറികളുടെ ഉദ്ഘാടനം മന്ത്രി എ കെ ബാലൻ ഇന്ന് തിരുവനന്തപുരം വിതുരയിൽ നിർവ്വഹിക്കും

കമ്പ്യൂട്ടർ ട ഇന്റർനെറ്റ് പഠന ഉപകരണങ്ങൾ ലൈബ്രറി തുടങ്ങിവയും പഠനമുറികളിൽ സജ്ജീ കരിച്ചിട്ടുണ്ട്

ഹിക യുവജന സംഘടനകൾ ശ്മശാനങ്ങൾ തുടങ്ങിയവയുടെ പട്ടയമില്ലാത്ത ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത അടിസ്ഥാനരഹി തമാണെന്ന് മന്ത്രി ഇ

ഈ സ്ഥാപനങ്ങളുടെ ഭൂമി പല യിടത്തും വ്യക്തമായ രേഖകളുടെ പിൻബലമില്ലാതെയാണ് കൈവശമിരിക്കുന്ന ത് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഭൂമി നിയമപരവും വ്യവ സ്ഥാപിതവുമായ മാർഗ്ഗങ്ങളിലൂടെ ക്രമവത്കരിച്ച് നൽകുന്നതിനാണ് ഗവൺമെന്റ് ആലോചിച്ചിക്കുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

കണ്ണൻ നിർവ്വഹിക്കും

വികസന പാക്കേജ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിക്കും രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും ദുരിതബാധിത ജില്ലകളിലെ വിവിധ മേഖലകൾക്കുവേണ്ടി വായ്പാ പദ്ധതികൾ പ്രാദേശിക ഗവൺമെന്റ് പദ്ധ തികൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതികൾക്കു കീഴിൽ ജീവനോപാധി പ്രൊജക്ടു കൾ കുടുംബശ്രീയുടെ ഉദ്യമങ്ങളും പ്രൊജക്ടുകളും കേന്ദ്രാവിഷ്കൃത പദ്ധതി കൾക്കുകീഴിൽ പ്രത്യേക ഗ്രാന്റുകൾ നൈപുണ്യ വികസന പദ്ധതികൾ എന്നിവ സംബന്ധിച്ച സെഷനുകൾ ഉണ്ടായിരിക്കും

സാധാരണ സമയക്രമത്തിൽ ട്രെയിനുകൾ ഇന്നുമുതൽ സർവീസ് നടത്തുമെന്നും റെയിൽവെ അറിയിച്ചു